എക്സ് മീഡിയ കേസിൽ സി

ഐ അറസ്റ്റ് ചെയ്തു ഗസ്റ്റ് ഹൌസിൽ ചോദ്യം ചെയ്യുന്ന അദ്ദേഹത്തെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരേ കുറ്റപത്രമില്ലെന്ന് ചിദംബ രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് യു

ബഹറൈൻ രാജൃങ്ങളിൽ സന്ദർശനത്തിനായി ഇന്ന് യാത്രതിരി ക്കും മഴയിലും പ്രളയത്തിലും ഭൌമസ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ പഠി ക്കാൻ വിദഗ്ധ സംഘങ്ങൾ ജില്ലകളിൽ സന്ദർശനം തുടങ്ങി കാലിക്കറ്റ് വെറ്ററിനറി സർവകലാശാലകൾ സംയുക്തമായി സംസ്ഥാനത്ത് അന്താരാഷ്ട്ര പക്ഷി ഗവേക്ഷണകേന്ദ്രം തുടങ്ങും ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പൃൻഷിപ്പിന്റെ ആദൃ മത്സരത്തിൽ ഇന്തൃ ഇന്ന് വെസ്റ്റിൻഡീസിനെ നേരിടും മുൻ ധനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തെ ഐ

എക്സ് മീഡിയ കേസിൽ സി

ഐ അറസ്റ്റ് ചെയ്തു ഡൽഹി ജോർബാഗിലെ ചിദംബരത്തിന്റെ വസതിയിൽനിന്ന് ഇന്നലെ രാത്രി അതൃന്തം നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് ചിദംബരത്തെ അറസ്റ്റ് ചെയ്തത് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് അറ സ്റ്റെന്ന് സി

ഐ വക്താവ് അറിയിച്ചു രാം മനോഹർ ലോഹ്യ ആശു പത്രിയിൽ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയശേഷം സി

ഇന്ന് പ്രത്യേക സി

ഐ കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും രാത്രി എ

ആസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കളോടൊപ്പം വാർത്താസമ്മേളനം നടത്തി വസതിയിൽ തിരിച്ചെത്തിയ ഉടനെയായി രുന്നു ചിദംബരത്തിന്റെ അറസ്റ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഗെയ്റ്റ് അടച്ച തിനെത്തുടർന്ന് മതിൽ ചാടിക്കടന്നാണ് സി

ഐ സംഘം അദ്ദേ ഹത്തെ കസ്റ്റഡിയിലെടുത്തത് കേസിൽ ഡൽഹി ഹൈക്കോടതി മുൻകൂർജാമ്യം നിഷേധിച്ചതിനെത്തുടർന്ന് ചിദംബരത്തെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു

എക്സ് മീഡിയ കേസുമായി ബന്ധപ്പെട്ട് തനിക്കെതിരേ കുറ്റപത്രം ഇല്ലെന്ന് എ

ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ചിദംബരം പറഞ്ഞു താനോറകുടുംബാംഗങ്ങളോ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് തനിക്കെതിരേ ഉന്നയിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു താൻ ഒളി ച്ചോടിയിട്ടില്ലെന്നും നിയമ പരിരക്ഷയ്ക്ക് ശ്രമം നടത്തുക മാത്രമാണ് ചെയ്തതെന്നും ചിദംബരം അറിയിച്ചു

സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി യു

യിലെ അജ്മാനിൽ ചെക്ക് കേസിൽ അറസ്റ്റിലായതായി റിപ്പോർട്ട് പത്ത് വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ തൃശൂർ സ്വദേശി നാസിൽ അബ്ദുള്ളയുടെ പരാതിയിലാണ് തുഷാർ പിടിയിലായത് ഒത്തുതീർപ്പി നെന്ന പേരിൽ അജ്മാനിലേക്ക് വിളിച്ചുവരുത്തിയായിരുന്നു തുഷാറിനെ അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് യു

ഇ ബഹറൈൻ രാജ്യ ങ്ങളിൽ സന്ദർശനത്തിനായി ഇന്ന് യാത്രതിരിക്കും വൈകീട്ട് ഫ്രാൻസി ലെത്തുന്ന അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും പ്രതിരോധം സമുദ്രയാന സുരക്ഷ ഭീകരവാദ ത്തിനെതിരായ പോരാട്ടം സിവിൽ ആണവോർജ്ജം തുടങ്ങിയ മേഖല കളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നത് ചർച്ചാവിഷയമാകും വ്യാപാ രവും നിക്ഷേപവും വർധിപ്പിക്കുന്നതും ചർച്ച ചെയ്യും പാരീസിലെ ഇന്ത്യൻ സമൂഹത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും രണ്ട് ദിവ സത്തെ സന്ദർശനം പൂർത്തിയാക്കി നാളെ മോദി യു

ഇയിലേക്ക് പോകും

ശനിയാഴ്ച ബഹറൈനി ലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ഖാലിഫ ബിൻ സൽമാൻ അൽ ഖാലിഫ രാജകുമാരനുമായി ഉഭയകക്ഷി അന്താരാഷ്ട്ര കാര്യങ്ങൾ ചർച്ച ചെയ്യും

ന്യൂഡൽഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ കോൺഗ്രസ് നേതാക്ക ളെയും പ്രവർത്തകരെയും പാർട്ടി അധ്യക്ഷ സോണിയാ ഗാന്ധിയും മുൻ പ്രധാനമന്ത്രി ഡോ മൻമോഹൻസിങും അഭിസംബോധന ചെയ്യും കലാ കാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണരും പരിപാടിയിൽ പങ്കെടുക്കും കനത്തമഴയെയും പ്രളയത്തെയും തുടർന്ന് ഭൌമസ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ സംബന്ധിച്ച് പഠനവും പരിശോധനയും നടത്താൻ വിദഗ്ധ സംഘങ്ങൾ ജില്ലകളിൽ സന്ദർശനം തുടങ്ങി ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് രണ്ട് അംഗങ്ങൾവീതമടങ്ങിയ സംഘങ്ങളാണ് ജില്ലകളിലെ പ്രളയ നാശനഷ്ടങ്ങളുണ്ടായ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്

മലപ്പുറം ജില്ലയിൽ പത്തംഗ സംഘമാണ് പരി ശോധന നടത്തുന്നത്

ഇടുക്കി ജില്ലയിൽ പരിശോധന ഇന്നാരംഭിക്കും

ജിയോളജിസ്റ്റ് മണ്ണ് പര്യ വേഷണ ഉദ്യോഗസ്ഥൻ എന്നിവരുടെ നേതൃത്വത്തിൽ വിദഗ്ധരടങ്ങിയ സംഘം പ്രദേശത്തിന്റെ പ്രത്യേകതയും ഭൌമ പ്രതിഭാസങ്ങളുടെ സാന്നി ധൃവും ഉൾപ്പെടെ വിലയിരുത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും ഒരാ ഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാന ത്തിൽ തുടർച്ചയായി പ്രകൃതിദുരന്തം നേരിടുന്ന പ്രദേശങ്ങളിൽ ജന ങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇടയാക്കുന്ന സാഹചര്യം നിലവിലുണ്ടോയെന്ന് തീരുമാനമെടുക്കും മണ്ണിടിച്ചിലുണ്ടായ മലപ്പുറം കോട്ടക്കുന്നിൽ വിദഗ്ധസംഘം പരി ശോധന നടത്തി

സ്വാഭാവിക നീർച്ചാലുകളുടെ ഗതി മാറി യതും ദുരന്തത്തിന് കാരണമായെന്ന് സംഘം വിലയിരുത്തി പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിൽ ഖനന പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിരോധനം കർശനമായി തുടരും മഴ കുറഞ്ഞതിനാൽ മറ്റ് ജില്ലകളിൽ ഖനന നിരോധനത്തിന് ഇളവ് നൽകി യെങ്കിലും ജില്ലയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ദുര ന്തനിവാരണ അതോറിറ്റി നിരോധനം തുടരാൻ തീരുമാനിച്ചത് കെട്ടിട നിർമാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മണ്ണ് നീക്കം ചെയ്യുന്നത് അടക്കം കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഇടുക്കി തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണകേന്ദ്രം തിരുവന ന്തപുരത്ത് അറിയിച്ചു രണ്ട് ജില്ലകളിലും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാ പിച്ചിട്ടുണ്ട് കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ വ്യാപകമായി ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത കണക്കിലെ ടുത്ത് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഞായറാഴ്ചവരെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാ വസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇടുക്കി മലപ്പുറം കോഴിക്കോ ട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെയും കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റന്നാളും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്

അഞ്ചുപേരെ ഇനിയും കണ്ടെത്താനു ണ്ട് പ്രദേശവാസികളുടെ സഹായത്തോടെ പ്രത്യേകസംഘം സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിനുസമീപമടക്കം പരിശോധന നടത്തുന്നുണ്ട്

ഇതുസംബന്ധിച്ച ധാരണാപത്രം മന്ത്രി കെ രാജുവിന്റെ സാന്നിധൃത്തിൽ രണ്ട് സർവക ലാശാലകളിലെയും രജിസ്ട്രാർമാർ തിരുവനന്തപുരത്ത് ഒപ്പുവെച്ചു

കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തുടങ്ങുന്ന അന്താരാഷ്ട്ര പക്ഷിഗവേഷണ കേന്ദ്രം രാജ്യത്ത് ആദ്യത്തേതാണ്

ഇന്ത്യൻ സമയം രാത്രി ഏഴിന് ആന്റി ഗ്വയിലെ നോർത്ത് സൌണ്ട് സ്റ്റേഡിയത്തിലാണ് മത്സരം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ പുതുതായി തുടങ്ങിയ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഇരു രാജ്യങ്ങളുടെയും ആദ്യ മത്സരമാണിത് ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ബാസലിൽ ഇന്ത്യയുടെ പി

സിന്ധുവും കെ

അമേരിക്കയുടെ ബീവൻ സാങ്ങാണ് പ്രീ കാർട്ടറിൽ പി

സിന്ധു വിന്റെ എതിരാളി ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ മറ്റുന്നാൾ ഗോകുലം കേരള എഫ്

കൊൽക്കത്തയിൽനടന്ന സെമി യിൽ ഈസ്റ്റ് ബംഗാളിനെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് ഗോകുലം ഫൈനലിലെത്തിയത് റിയൽ കശ്മീരിനെ ഒന്നിനെതിരേ മൂന്ന് ഗോളു കൾക്ക് തോൽപ്പിച്ച് മോഹൻബഗാൻ ഫൈനൽ യോഗ്യത നേടി ഡൽഹിയിൽ നടക്കുന്ന സുബ്രതോകപ്പ് ഫുട്ബാൾ ടൂർണമെന്റിൽ സബ്ജൂനിയർ വിഭാഗത്തിൽ കേരളം അസമിനോട് സമനില വഴങ്ങി ഇന്നലെ നടന്ന മത്സരത്തിൽ ഇരുടീമുകളും ഓരോ ഗോൾവീതമടിച്ച് സമനിലയിൽ പിരിയുകയായിരുന്നു കേരള ഹൈക്കോടതിയിലെ മൂന്ന് അഡീഷണൽ ജഡ്ജിമാരെ ജഡ്ജിമാരായി നിയമിച്ചു ജസ്റ്റീസുമാരായ അശോക് മേനോൻ ആനി ജോൺ ആർ നാരായണ പിഷാരടി എന്നിവരെയാണ് ജഡ്ജിമാരാക്കി കേന്ദ്ര നിയമമന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് കൊച്ചി മെട്രോയുടെ ആലുവ മുതൽ മഹാരാജാസ് വരെ സർവീസ് നാളെയും മറ്റന്നാളും രാവിലെ ആറിന് പകരം എട്ടിനേ ആരംഭിക്കൂയെന്ന് അധികൃതർ അറിയിച്ചു മഹാരാജാസ് മുതൽ തൈക്കുടംവരെ സിഗ്നലിങ് ടെസ്റ്റിങ് നടക്കുന്നതിനാലാണ് സമയം മാറ്റിയത് കണ്ണൂർ കാനാമ്പുഴ നദി പുനരുജ്ജീവന നടപടി വേഗത്തിലാക്കു മെന്ന് മന്ത്രി കെ

നദിയിലെ വെള്ളത്തിന്റെ അളവ് പ്രളയമുണ്ടായാൽ എത്ര ത്തോളം വെള്ളം കയറാൻ സാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെ ടുത്തി ജല ബജറ്റ് തയ്യാറാക്കാൻ മന്ത്രി ഹരിതകേരളമിഷനോട് നിർദ്ദേ ശിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുമായി തുരുവനന്തപുരത്ത് നട ത്തിയ ചർച്ചയിലാണ് തീരുമാനം നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിൽ ഇടുക്കി മജിസ്ട്രേറ്റിന് വീഴ്ച പറ്റിയെന്ന് തൊടുപുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ റിപ്പോർട്ട് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചല്ല രാജ്കുമാറുമായി ബന്ധപ്പെട്ട കേസ് ഇടുക്കി മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്തതെന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു

ഇടുക്കി മജിസ്ട്രേറ്റ് രശ്മി രവീന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഇതിന് മുമ്പും ഇത്തരം പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു കശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ വിഷയത്തിൽ പ്രമേയം പാസ്സാക്കിയതിലൂടെ കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ രാജ്യതാല്പരൃത്തിന് എതിരായ സമീപനം സ്വീകരിച്ച നടപടി ലജ്ജാവഹമാണെന്ന് ബി

പി സംസ്ഥാന പ്രസിഡന്റ് പി

ശ്രീധരൻപിള്ള ആരോപിച്ചു കോഴിക്കോട്ട് ബി

പിയിൽ ചേർന്ന ന്യൂനപക്ഷ നേതാക്കൾക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി

ആരേയും മാറ്റിനിർത്തുന്നില്ലെന്നും എല്ലാവരേയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

യും ചടങ്ങിൽ പ്രകാശനം ചെയ്യും വയനാട് ജില്ലയിൽ മഴ മാറിനിന്നതോടെ ജനജീവിതം സാധാരണ നിലയിലായിതുടങ്ങി

മലപ്പുറം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം അഞ്ചായി ചുരുങ്ങി നിലമ്പൂർ താലൂക്കിലാണ് ക്യാമ്പുകൾ

സ്പിൽവേ ഷട്ടർ അഞ്ച് സെന്റീമീറ്റർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകും വടക്കാഞ്ചേരി പുഴ യിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ വട ക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെയും തെക്കുംകര എരുമപ്പെട്ടി വേലൂർ ചൂണ്ടൽ കണ്ടാണശ്ശേരി എളവള്ളി മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തുകളി ലെയും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിലെ പത്താഴക്കുണ്ട് ഡാം തുറന്നു